ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലിക്ക് രാജ്യത്തിന്റെ യാത്രാമൊഴി സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ച കഴിഞ്ഞ് ഡൽഹിയിലെ നിഗംബോധ്ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹറിൻ രാജാവുമായി കൂടി ക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയെ ്കിങ് ഹമദ് ഓഡർ ഓഫ് റിനൈസൻസ് നൽകി ബഹറിൻ ആദരിച്ചു കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധൃതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്

ഡ്യൂറാന്റ് കപ്പ് ഫുട്ബോൾ കിരീടം ഗോകുലം കേരള എഫ്

വെസ്റ്റിൻഡീസിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആധിപത്യത്തിലേക്ക് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെ നേരിടും

ജെ

സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിലെ നിഗംബോധ്ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും രാവിലെ പത്തുമുതൽ പാർട്ടി ആസ്ഥാനത്ത് ഭൌതികശരീരം പൊതു ദർശനത്തിന് വെയ്ക്കും ഒന്നരയോടെ വിലാപയാത്രയായി ശരീരം നിഗം ബോധ്ഘട്ടിലേക്ക് കൊണ്ടുപോകും ഇന്നലെ സൌത്ത് ഡൽഹി ക്ടൈലാഷ് കോളനിയിലെ വസ തിയിൽ പൊതു ദർശനത്തിനുവെച്ച് ഭൌതികശരീരത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്ക യ്യനായിഡു ബി

പി അധ്യക്ഷൻ അമിത്ഷാ യു

എ അധ്യക്ഷ സോണിയാ ഗാന്ധി തുടങ്ങിയവരടക്കം പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി ഗുലാംനബി ആസാദ് അഹമ്മദ് പട്ടേൽ കേന്ദ്രമന്ത്രി മാർ ലോക്സഭാ സ്പീക്കർ ഓംബിർള തുടങ്ങിയവരും വീട്ടി ലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു വിദേശപര്യടനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാ പ്രവർത്തകൻ എന്ന നിലയിൽ ദീർഘകാലം തനി ക്കൊപ്പമുണ്ടായിരുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ വേർപാടിൽ അതീവമായ ദുഃഖം അറിയിച്ചു

വൃക്ക മാറ്റിവയ്ക്കലിന് വിധ്യേനായ അദ്ദേ ഹത്തിന്റെ ആരോഗ്യനില മോശമായതിനെത്തുടർന്ന് ഈ മാസം ഒമ്പതിന് ഡൽഹിയിലെ എയിംസിൽ പ്രവേശിപ്പിക്കുക യായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹറിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി

നേരത്തെ യു

ഇ സന്ദർശിച്ച പ്രധാനമന്ത്രി വിദേശവ്യാ പാരവും ഉഭയകക്ഷി ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിനെ പ്പറ്റി ചർച്ച നടത്തി വിദേശത്തെ പണരഹിത ഇടപാടുകൾ സജീവമാക്കുന്നതിനായി റുപേ കാർഡ് വിനിമയത്തിന് യു

ഇയിൽ അദ്ദേഹം തുടക്കം കുറിച്ചു ബഹറിനിൽ ഈ സംവിധാനം ഉടൻ നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരബന്ധം സംശയിച്ച് കൊച്ചിയിൽ പൊലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൽ ഖാദർ റഹീമിനെയാണ് എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിൽനിന്ന് പിടികൂടിയത്

എന്നാൽ താൻ നിരപരാധിയാണെന്നും പൊലീസിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അബ്ദുൽ ഖാദർ പ്രതി കരിച്ചു ഇയാളെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത് വരികയാണ് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന യുവതിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്

നാളെ കോഴിക്കോ ട് വയനാട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് ആയിരിക്കും രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വയ നാട്ടിലെ പ്രളയബാധിത മേഖലകളിൽ സന്ദർശനം നടത്തും

വയനാട്ടിലെ പ്രളയബാധിത പ്രദേശത്തെ പഴം പച്ചക്കറി ഉല്പന്നങ്ങൾ സംഭരിച്ച് കോഴിക്കോട്ട് ന്യായവില വിപണി കൾ വഴി വിറ്റഴിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി വി

ഇടനിലക്കാരുടെ ചൂഷണം ഒഴി വാക്കാനാണ് ഹോർട്ടികോർപും ഫ്രൂട്ട്സ് ആന്റ് വെജിറ്റബിൾ പ്രമോഷൻ കൌൺസിലും ചേർന്ന് ഇവ സംഭരിക്കുന്നത് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക നേരിട്ട് നൽകും പദ്ധതി നാളെ രാവിലെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്യും പ്പ് പ്രളയി ബാധിതർക്ക് സഹായം സമാഹരിക്കാൻ കേരള ലളിതകലാ അക്കാദമിയും നീരാവിൽ പ്രകാശ് കലാകേ ന്ദ്രവും കൊല്ലത്ത് സംഘടിപ്പിച്ച ചിത്രരചനാ ക്യാമ്പ് മന്ത്രി ജെ മേഴ്സികുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു

വഴിക്കടവ് നാടുകാണി ചുരം റോഡ് അകമ്പാടം പാതാർ റോഡ് എന്നിവയ്ക്കാണ് കൂടു തൽ നഷ്ടം

പാടത്ത് വീണ്ടും കൃഷിയിറക്കാൻ കർഷകരും കൃഷിവകുപ്പും ഒരുക്കങ്ങൾ തുടങ്ങി

ഉരുൾപൊട്ടൽ മേഖലകളിൽ മണ്ണ് പരിശോധിച്ച് പ്രത്യേക ശ്രദ്ധയോടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കലക്ടർ ആവശ്യപ്പെട്ടു

ആകാ ശവാണി ദൂരദർശൻ നിലയങ്ങളിലും ആകാശവാണി വെബ്സൈറ്റിലും പരിപാടി ലഭ്യമാകും

രാത്രി എട്ടിന് പ്രാദേശിക ഭാഷകളിൽ പുനഃപ്രക്ഷേപണവും ഉണ്ടാകും

കൊൽക്കത്ത സാൾട്ട്ലേക്ക് സ്റ്റേഡിയ ത്തിലെ ഫൈനലിൽ ആതിഥേയരായ മോഹൻ ബഗാനെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് ഗോകുലം കിരീടം നേടിയത് രണ്ട് ഗോളുകളും നേടിയ ക്യാപ്റ്റൻ മാർക്കസ് ജോസഫ് ടൂർണ്ണമെന്റിലെ ഗോൾഡൻ ബോൾ ഗോൾഡൻ ബൂട്ട് പുരസ്കാരങ്ങൾക്ക് അർഹനായി ഗോകു ലത്തിന്റെ ഗോളി സി

സി കൊച്ചി മോഹൻബഗാനെ പരാജയപ്പെടുത്തി ഡ്യൂറന്റ് കപ്പ് നേടിയിരുന്നു വെസ്റ്റിൻഡീസിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആധിപത്യത്തിലേക്ക്

ഏഴ് വിക്കറ്റും രണ്ടുദിവസവും ശേഷിക്കെ ആദ്യ ടെസ്റ്റ് കൈപ്പിടിയിലൊതുക്കാമെന്ന ആത്മ വിശ്വാസത്തിലാണ് ഇന്ത്യ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെ നേരിടും

ഇന്നലെ സെമിയിൽ ചൈനയുടെ ചെൻ യുഫേയിയെ തോൽപ്പിച്ചാണ് സിന്ധു ഫൈനലിൽ എത്തിയത് തുടർച്ച യായ മൂന്നാം വർഷമാണ് സിന്ധു ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്തുന്നത് പുരുഷ വിഭാഗം സെമിയിൽ ജപ്പാൻ താരത്തോട് തോറ്റ് ബി സായ്പ്രണീത് വെങ്കലവുമായി മടങ്ങി

വടകരയിൽ എറണാകുളം വയനാടിനെയും കോട്ടയം കണ്ണൂരിനെയുമാണ് തോൽപ്പിച്ചത് സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും രാജ്യത്തെ ആദ്യ സംഗീത സഹകരണ സ്യംഘത്തിന്റെ പ്രവർത്തനം ഇന്ന് കോഴിക്കോട്ടാരംഭിക്കും കോഴിക്കോട് മ്യുസീഷ്യൻസ് സോഷ്യൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി മന്ത്രി എ കെ ശശീന്ദ്രൻ വൈകിട്ട് ടൌൺഹാ ളിൽ ഉദ്ഘാടനം ചെയ്യും ഗായുകർ സൃംഗീത ഉപകരണ വിദ ഗ്ദ്ധർ സംഗീത സംവിധായകർ സംഗീത അധ്യാപകർ സംഗീത അവതാരകർ തുടങ്ങിയ്വർ സംഘത്തിലുണ്ട് അഞ്ചേരി ബേബി വധക്കേസിൽ സി

ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ

സുപ്രീം കോടതി വിധി നിർദ്ദേശങ്ങൾ പാലിക്കാതെ ധൃതിയിലാണ് മജിസ്ട്രേറ്റ് ഉത്ത രവിറക്കിയതെന്ന് കോടതി വിലയിരുത്തി കേസിൽ പ്രതികളെ ചേർക്കൽ അനന്തമായി തുടരേണ്ട നടപടിയല്ലെന്നും കോടതി വിമർശിച്ചു ഗവൺമെന്റ് നിലപാടിന് അനുസൃതമായി സമൂഹമൊ ട്ടാകെ പൊതു വിദ്യാലയങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക യാണെന്ന് മന്ത്രി എ

ചേളന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വരും തലമുറയെ നേർവഴിക്ക് നയിക്കാൻ ദ്രിശാബോധ മുള്ള സ്കൂൾ അന്തരീക്ഷം വിദ്യാർത്ഥികൾക്കായി ഒരുക്ക ണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു മര ക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഖാദി കണ്ണൂർ ജില്ലാതല ഓണം മേളയുടെ ഭാഗമായി ആരം ഭിച്ച സിൽക്സാരി പവലിയൻ മന്ത്രി കെ

സ്വാതന്ത്രൃ സമരഘട്ടത്തിലേതുപോലെ ഖാദി വസ്ത്രങ്ങളുടെ ഉപയോഗം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴി യണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു പാലാ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പി

ജോസഫ് ഉൽക്കണ്ഠപ്പെടേണ്ടതില്ലെന്ന് കേരളാ കോൺഗ്രസ് നേതാവ് റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു പാർട്ടി ചെയർമാനായി ജോസ്

മാണി എം പിയെ ജനാധിപത്യപരമായി തെരഞ്ഞെ ടുത്തിരിക്കെ ഏത് പാർട്ടിയുടെ കാര്യമാണ് ജോസഫ് പറ യുന്നതെന്ന് റോഷി അഗസ്റ്റിൻ കോട്ടയത്ത് ചോദിച്ചു

ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്യും

ഭൂജലവകുപ്പിലെയും മണ്ണ് സംരക്ഷണ വകുപ്പിലെയും വിദഗ്ദ്ധരാണ് പരിശോധന നടത്തിയത്